ഒരാഴ്ചത്തെ ട്രിപ്പിൾ ലോക്ഡൌൺ നിലവിൽ വന്നു സെക്രട്ടറിയേറ്റും സർക്കാർ ഓഫ്റീസുകളും തുറക്കില്ല

കൊച്ചിയിലും മലപ്പു്രും പൊന്നാനിയിലും പരിശോധനകൾക്ർശനമാക്കി

രാജ്യത്ത് നാലേകാൽ ലക്ഷത്തോളം പേർക്ക് രോഗമുക്തി

അറിയില്ലെന്ന് യു എ ഇ കോൺസൽ ജനറൽ കസ്റ്റംസിനെ അറിയിച്ചു

പൊതു ഗതാഗതം അനുവദിക്കില്ല പൊലീസിന്റെ വ്യാപക പ്രിശോധന എല്ലാ മേഖലയിലും ഉണ്ടാവുമെന്ന് തിരുവനന്തപുരം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ദിവ്യ ഗോപിനാഥ് പറഞ്ഞു

എസ് ആർ ടി

ആശുപത്രികൾ മെഡിക്കൽ ഷോപ്പുകൾ അവശ്യ സാധന വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവ തുറക്കാം പലചരക്ക് കടകൾ തുറക്കുമെങ്കിലും സാധനങ്ങൾ അവിടെ പോയി വാങ്ങാൻ അനുവദിക്കില്ല ആവശ്യക്കാർക്ക് പൊലീസ് സാധനങ്ങൾ എത്തിച്ചുകൊടുക്കും ബാങ്കിംഗ് എ ടി

പെട്രോൾ പമ്പുകൾ പാചക വാതക വിതരണം ജലം വൈദ്യുതി ശുചീകരണം മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണം ബാധകമല്ല

കേരള സർവ്വകലാശാല നഗരസഭാ പരിധിയിൽ എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു

എറണാകുളം മെഡിക്കൽ കോളേജിൽ കോവിഡ് ചികിത്സയിലായിരുന്ന കൊച്ചി തോപ്പും പടി സ്വദേശി യൂസഫ് സൈഫുദ്ദീൻ ആണ് ഇന്നലെ രാത്രി മരിച്ചത്

ബ്രോഡ്വേ കലൂർ കടവന്ത്ര പാലാരിവട്ടം ഇടപ്പള്ളി ആലുവ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പോലീസിന്റെ കർശന പരിശോധന ഇത് കൂടാതെ മറ്റ് സ്ഥലങ്ങളിലും പോലീസ് പരിശോധന കർശനമാക്കി

സാമൂഹ്യ വ്യാപനം മനസ്സിലാക്കാൻ പൊന്നാനി താലൂക്കിലെ അഞ്ച് സെന്ററുകളിൽനിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ശേഖരിച്ച മുഴുവൻ സാമ്പിളുകളുടെയും പരിശോധനാ ഫലം നെഗറ്റീവായി

കാറന്റൈനിൽ കഴിയുന്നയാളെ സന്ദർശിക്കാനായി എത്തിയ യുവാവിനെതിരെയും പൊലീസ് കേസെടുത്തു

ഇടുക്കി പ്രതിനിധി ആന്റണി മൂനിയറയുടെ റിപ്പോർട്ട് വോയിസ്

ഗൾഫ് നാടുകളിൽ നിന്നുള്ള വിമാനങ്ങൾക്കുപുറമെ ചിക്കാഗോയിൽ നിന്നുള്ള വിമാനവും കൊച്ചിയിൽ എത്തിച്ചേരും

സംഭവവുമായി ബന്ധമില്ലെന്ന് യു എ

ഡി എഫിൽനിന്ന് പുറത്താക്കിയെങ്കിലും കേരള കോൺഗ്രസ് എം ഇപ്പോഴും യു

എ യുടെ ഭാഗമാണെന്ന് ജോസ് കെ

നേരത്തെ യു ഡി എഫ് വിട്ടപ്പോഴും പാർട്ടി യു

സ്വർണ്ണവില കുറഞ്ഞു

ആലപ്പുഴ കോട്ടയം എറ്റ്ണാകുളം ഇടുക്കി തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ക്ടാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലെർട്ട് ന്റൽകീയത്